ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിച്ചു സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ചേരും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ജയിലുകളിലെ തൊഴിൽ പരിശീലനങ്ങൾ ആധുനിക യന്ത്രസാമഗ്രികൾ

പൌരത്വ നിയമ ഭേദഗതി ആരുടെയും പൌരത്വം എടുത്തുകളയാനല്ലെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കി പീഡനങ്ങൾക്ക് വിധേയരാകുന്ന അഭയാർത്ഥികൾക്ക് പൌരത്വം നൽകുന്നതിനാണ് നിയമം ഭേദഗതി ചെയ്തതെന്നും അദ്ദേഹം ട്ടിറ്ററിൽ അറിയിച്ചു പൌരത്വ നിയമ ഭേദഗതിക്ക് പിന്തുണ നൽകാൻ ഹാഷ് ടാഗ് ഇന്ത്യ സപ്പോർട്ട്സ് സി എ എയെ ഉപയോഗിക്കണമെന്ന് ജനങ്ങളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു കരസേനാ മേധാവി സ്ഥാനത്തുനിന്ന് ഇന്ന് വിരമിക്കുന്ന ജനറൽ ബിപിൻ റാവത്തിനെ രാജ്യത്തിന്റെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയ മിച്ചു

സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങ ളിൽ ഗവൺമെന്റിന്റെ ഏക ഉപദേശകനായാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പ്രവർത്തിക്കുക മൂന്ന് സൈന്യങ്ങൾക്കുമിടയിൽ ഏകോപനമുണ്ടാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ചേരും ലോക്സ ഭയിലും നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ്ഗ സംവരണം പത്തു വർഷ ത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്ന പ്രമേയം അംഗീകരിക്കാനാണ് സമ്മേളനം ചേരുന്ന ത്

ഈ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായ പ്രമേയം പരിഗണിക്കാനാണ് സഭ ചേരുന്നത്

മാധ്യമ കൃഷി പരിസ്ഥിതി കൈത്തൊഴിൽ വ്യവസായ സ്മ്മേളനങ്ങളും ഇന്ന് നടക്കും അർദ്ധരാത്രി മഹാസമാധി സന്നിധിയിൽ പുതുവത്സര പൂജയും സമൂഹപ്രാർത്ഥനയും ഉണ്ടാകും ധനമല്ല ധന്യതയാണ് സന്തോഷകരമായ ജീവിതത്തി നാധാരമെന്നും ഭക്തി അതിലേക്കുള്ള മാർഗ്ഗമാണെന്നും മിസോറാം മുൻഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു

മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിക്കണ്ട് സഹായിക്കാനുള്ള മനോഭാവം ഇശ്വരഭക്തിയിലൂടെ ഉണ്ടാകുമെന്നും കുമ്മനം അഭിപ്രായപ്പെട്ടു ജയിലുകളിലെ തൊഴിൽ പരിശീലനങ്ങൾ ആധുനിക യന്ത്രസാമഗ്രി കൾ സ്ഥാപിച്ച് വിപുലീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജയിലുകളോടനുബന്ധിച്ച് ഇന്ത്യൻ ഓയിൽ കോർപറേഷന്റെ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൂജപ്പുരയിൽ നിർവഹിച്ചു സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം വിയ്യൂർ കണ്ണൂർ സെൻട്രൽ ജയി ലുകളിലും ചീമേനി തുറന്ന ജയിലിലുമാണ് പമ്പ് ആരംഭിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം തളർത്താത്ത കേരളത്തിലെ ഒരേയൊരു രംഗം ടൂറിസം മേഖലയാണെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു വിദേശത്ത് മാന്ദ്യമില്ലാത്തതിനാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സി യുടെ ബജറ്റ് ഹോട്ടൽ റിപ്പാൾ ലാൻഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സപ്പൈകോ വിൽപ്പന കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ഉല്പന്നങ്ങൾ വിപണനം ചെയ്യുമെന്ന് മന്ത്രി പി

മുന്നൂ ദിവസങ്ങളിലായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന ചരിത്ര കോൺഗ്രസ്സ് കാലിക പ്രസക്തിയുള്ള പ്രബന്ധങ്ങൾ കൊണ്ടും ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന വിവിധങ്ങളായ പ്രദർശനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു പ്രശസ്ത ചരിത്രകാരന്മാരായ ഇർഫാൻ ഹബീബ് അമിയ കുമാർ ബാഗ്ചി മഹാലക്ഷ്മി രാമകൃഷ്ണൻ ഡോ കെ കെ എൻ കുറുപ്പ് പ്രൊഫസർ ഡോ രാജൻ ഗുരുക്കൾ പ്രൊഫസർ രാജൻ വെളുത്താട്ട് തുടങ്ങിയവർ പ്രബന്ധാവതരണം നടത്തി

കണ്ണൂരിൽ അഞ്ചാമത് ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഒൻപത് കോടി രൂപയുടെ വരുമാനവും നേടി ് ് ് ് ് ് രണ്ടാമത് ലോക കേരള സഭയുടെ ഭാഗമായി പ്രവാസി സാഹിത്യ സമ്മേ ളനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും യൂണിവേഴ്സിറ്റി കോളേജിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംവാദം ഓപ്പൺഫോറം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും

മൂന്നാമത്തെയും അവ സാനത്തേതുമായ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ആദ്യ രണ്ട് മത്സരങ്ങളിൽ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

മലപ്പുറം ചേലമ്പ്ര എൻ എൻ എം ഹൈസ്കൂൾ തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിനെ നേരിടും

നായിഡു ചതുർദിന ക്രിക്ക റ്റിൽ കേരളത്തെ ജാർഖണ്ഡ് പരാജയപ്പെടുത്തി ആറ് വിക്കറ്റിനാണ് ജാർഖണ്ഡിന്റെ ജയം

ഒരാളുടെ നില ഗുരുതര മാണ് നിർഭയ ദിനത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രി പൊതു ഇടം എന്റേതും എന്ന പേരിൽ സംഘടിപ്പിച്ച സ്ത്രീകളുടെ രാത്രി നടത്തം വൻ വിജയമായിരുന്നു വെന്ന് മന്ത്രി കെ

സൈര്യം മുന്നോട്ട് എന്ന പരിപാടി യുടെ ഭാഗമായി സംഘടിപ്പിച്ച രാത്രി നടത്തം ക്യാമ്പയിൻ തുടരുമെന്നും ആഴ്ച തോറും രാത്രി നടത്തം സംഘടിപ്പിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മുൻകൂട്ടി അറിയിക്കാതെയും രാത്രി നടത്തം ഉണ്ടാകും മാർച്ച് എട്ടുവരെ തുടർച്ച യായി രാത്രി നടത്തം സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചുപേർ മാത്രമാ ണ് രാത്രി നടത്തത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ശല്യപ്പെടുത്തിയതെന്ന് മന്ത്രി അറി യിച്ചു വർക്കലയിലും കാസർക്കോട്ടുമായി രണ്ടു കേസുകൾ മാത്രമാണ് എടു ക്കേണ്ടിവന്നതെന്നും ശൈലജ പറഞ്ഞു ജനാധിപത്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു

എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു എസ് കെ പൊറ്റക്കാട് സാഹിത്യപുരസ്കാരം മജീദ് മുത്തേടത്തിനും ജോൺ അഗസ്റ്റിനും സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പഞ്ചായത്തുകളിലേക്കും കേരഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി വി

എറണാകുളം ജില്ലയിലെ ആയവന കല്ലൂർക്കാട് മഞ്ഞ ള്ളൂർ പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം വാഴ ക്കുളത്ത് നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കൃഷി നമ്മുടെ ആരോഗൃം പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പച്ചക്കറികൃഷിയും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ക്കുമെന്ന് മന്ത്രി എ

ബാലൻ പറഞ്ഞു തൃശൂർ പുതുക്കാട് അളഗപ്പ നഗർ പഞ്ചാ യത്തിൽ തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കിഫ്ബിയുമായി സഹകരിച്ച് സാംസ്കാരിക വകുപ്പ് ഓരോ ജില്ലയിലും കൾച്ച റൽ കോംപ്ലക്സുകൾ സ്ഥാപിക്കുമെന്നും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും സിനി മകൾ കാണാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്നും മന്ത്രി അഭിപ്രായ പ്പെട്ടു

വഴി യോര കച്ചവടക്കാരുടെ പുനരധിവാസത്തിന് പദ്ധതി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു അസോസിയേഷൻ ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീ യറിംഗ് എംപ്ലോയീസ് അഖിലേന്ത്യാ പ്രസിഡന്റായി ലേ ദൂരദർശൻ കേന്ദ്രത്തിലെ എം

ചൌധരിയെയും ജനറൽ സെക്രട്ടറിയായി ഡൽഹി ദൂരദർശൻ കേന്ദ്രത്തിലെ മനോജ് ഗുപ്തയെയും തെരഞ്ഞെടുത്തു കോഴിക്കോട് ആകാശവാണിയിലെ ജോസഫ് മാർട്ടിനെ വൈസ് പ്രസിഡന്റായും സുബൈർ കോണിക്കലിനെ അസി സ്റ്റന്റ് ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു

പൌരത്വ ഭേദഗതി നിയമം എൻ ആർ സി വിഷയങ്ങളിൽ ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ സമ്മേളനം ഇന്ന് വൈകീട്ട് മുതലക്കുളത്ത് നടക്കും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും

കണ്ണൂരിലെ ജനജാഗ്രതാ സമ്മേളനം ഇന്ന് സ്റ്റേഡിയം കോർണറിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

മൂന്നാർ വിന്റർ കാർണിവൽ നാളെ ആരംഭിക്കും

നടൻ കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സി ബി ഐ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അമിത മദ്യപാനം മൂലമുണ്ടായ കരൾരോഗമാണ് മരണകാ രണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്

മണിയുടെ സഹോദരന്റെ ആവശ്യത്തെ തുടർന്നാണ് കേസ് സി ബി ഐ അന്വേഷിച്ചത്

തുറന്നു കൊടുക്കും ഇതോടെ കെ കെ റോഡിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും

വൈദ്യുതി ബിൽ കുടിശ്ശികയായതിന്റെ പേരിൽ യാതൊരു കാരണവശാലും വൈദ്യുതി വിച്ചേദിക്കരുതെന്ന് കലക്ടർ സാംബശിവറാവു നിർദ്ദേശിച്ചു